യൂണിയൻ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി കശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ

പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധ്യവീമാനത്തിൽ പറന്നു

തുടക്കം

വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം വിവിധ ജില്ലകൾ സന്ദർശിക്കുന്നു

ഷെട്ടി സഖ്യം പുറത്ത്

ഭീകരർക്ക്താവളമൊരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെഇ

ജമ്മു കശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ച്ഇ യു പാർലമെന്റ്വിലയിരുത്തണമെന്ന്സാർ്റെക്കി ആവശ്യപ്പെട്ടു

അവിടെ നിന്നുള്ള ഭീകരർയൂറോപ്പിൽ പോലും ആക്രമണങ്ങൾ നടത്തുന്നതായുംഅദ്ദേഹം പറഞ്ഞു കശ്മീർവിഷയംചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന്ചർച്ചയ്ക്ക്തുടക്കമിട്ട ഇ യു മന്ത്രി ടിറ്റി തപുറയ്നൻ ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

തദ്ദേശീയവൽക്കരണത്തിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ അടുത്തറിയുകയായിരുന്നു ലക്ഷ്യം തേജസ് യുദ്ധ വിമാനത്തിൽ പറന്ന ആദ്യ പ്രതിരോധ മന്ത്രിയാണ് ശ്രീ

വ്യോമസേനയ്ക്കു വേ ി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കസ് നിർമ്മിച്ച തേജസ് പോർ വിമാനം എയ്റോനോട്ടിക്കൽ വികസന ഏജൻസിയാണ് രൂപകൽപന ചെയ്തത്

ബംഗളൂരൂവിലെ എച്ച്

വ്യോമതാവളത്തിൽ നിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് എന്ന ലഘു യുദ്ധ വിമാനത്തിൽ പറന്നത് വൃത്യസ്തമായ അനുഭവമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു

ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി ശക്തിപ്പെടുത്താൻ തേജസ്സിനു കഴിയുമെന്ന് രാജ്നാഥ് സിംഗ് ടിറ്ററിൽ കുറിച്ചു

മംഗോളിയൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ നാളെആചാരപരമായസ്വീകരണം നൽകും രാഷ്ട്രപതിരാംനാഥ്കോവിന്ദ് ഉപരാഷ്ട്രപതിഎം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിഎന്നിവരെ മംഗോളിയൻ പ്രസിഡന്റ്സന്ദർശിച്ച്സംഭാഷണം നടത്തും

അടിസ്ഥാന സൌകര്യം ഊർജ്ജം ദുരന്ത നിവാരണം പ്രതിരോധം സുരക്ഷ മാനവശേഷിവികസനം എന്നീവിഷയങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യവുംഅവലോകനം ചെയ്യും ആഗ്ര ബോധ് ഗയ ബംഗളൂരുഎന്നിവിടങ്ങളിൽ മംഗോളിയൻ പ്രസിഡന്റ്സന്ദർശനം നടത്തും

സിംഗും ഗവർണർ സത്യപാൽ മാലിക്കും സംയുക്തമായി നിർവ്വഹിച്ചു

ഈ ശൈതൃകാലത്ത് മുൻകാലങ്ങളിലേതിനെക്കാൾ ഊർജ്ജ ലഭ്യത സാദ്ധ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

വീട്ടു പടിക്കൽസേവനം ലഭൃമാക്കുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ പദ്ധതിയും യോഗംഅവലോകനം ചെയ്യും

വായ്പാതിരിച്ചടവ് യിലു കാര്യവുംഅജ പൂർത്തിയായശേഷംസുരക്ഷാരേഖകൾമടക്കി നല്കുന്നത്വേഗത്തിലാക്കുന്നതിന് ധനമന്ത്രാലയം പ്രഖ്യാപിച്ച നടപടിക്രമങ്ങളുംഅവലോകനം ചെയ്യും

ജലം ഉൾപ്പെടെയുള്ള പ്രകൃതിവിഭവങ്ങൾസംരക്ഷിക്കുന്നതിൽ ജനാവബോധം വളർത്തുകയാണ്ലക്ഷ്യം

രാജ്യത്തിനകത്തും പുറത്തും നിന്നായി നിരവധി വിദഗ്ധർ ശില്പശാലയിൽ പങ്കെടുക്കും

പ്രാദേശികതലത്തിൽജലപരിപാലനത്തിന് ആവിഷ്കരിച്ച്വിജയകരമായി നടപ്പാക്കിയ പദ്ധതികൾ ശില്പശാല ചർച്ച ചെയ്യും

നാളെ തിരുവനന്തപുരത്ത് മൂഖ്യമന്ത്രി റവന്യൂമന്ത്രി മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയുപ്പർുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയ ശേഷം റിപ്പോർട്ട് തയ്യാറ്റാക്കി സമർപ്പിക്കും

കപ്പൽശാലയുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന മന്ത്രി ശുചിത്വ നടീൽ യജ്ഞത്തിലും പങ്കെടുക്കും തുടർന്ന് നാളെ കൊച്ചി തുറമുഖ ട്രസ്റ്റ് സന്ദർശിക്കും സ്വച്ഛ ഭാരത് സേവായജ്ഞം സൈക്കിൾ റാലി മാസികാ പ്രകാശനം തുടങ്ങിയ പരിപാടികളിലും കേന്ദ്രമന്ത്രി സംബന്ധിക്കും

മൂന്നു മുന്നണികളുടെയും പ്രമുഖ നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പ്രചാരണത്തിലാണ്

ജയ്ശങ്കർമൂന്ന്ദിവസത്തെ ഫിൻലാന്റ് സന്ദർശനത്തിനായിഇന്ന്യാത്ര തിരിക്കും വിദേശകാരൃമന്ത്രിയായിചുമതലയേറ്റശേഷമുള്ളജയശങ്കറുടെആദൃ ഫിൻലാന്റ് സന്ദർശനമാണിത്

ഫിൻലാൻ്റ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായുംകൂടിക്കാഴ്ച നടത്തുന്ന വിദേശകാര്യമന്ത്രി പിന്നീട് ഫിൻലാന്റ് പാർല്മെന്റ്അംഗങ്ങളുമായിആശയവിനിമയം നടത്തും

അതിന്റെതുടർച്ചയായാണ്വിദേശകാരൃമന്ത്രിജയ്ശങ്കറുടെ ഫിൻലാന്റ് സന്ദർശനം ന്യൂസ്ഡെസ്ക്ആകാശവാണി

ജപ്പാന്റെ തകേഷി കമുറ കെയ്ഗോ സൊനോഡ സഖ്യത്തോടാണ് പരാജയപ്പെട്ടത് ഇന്ന് നടക്കുന്ന മിക്സഡ് ഡ്ബിൾസ് മത്സരത്തിൽ സാത്വിക് അശ്വിനി പൊന്നപ്പ സഖ്യം ജപ്പാന്റെ യുകി കനേകോ മിസാകി മറ്റ്സുതോമോ സഖ്യത്തെ നേരിടും സിംഗിൾസ് മത്സരങ്ങളിൽ അഞ്ചാം സീഡായ പി

സിന്ധു പി കശ്യപ് ബി സായ് പ്രണീത് എന്നിവരും മത്സരിക്കും

ഇ സിഗരറ്റിന് നിരോധനം ഏർപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭ ഇന്നലെയ്യാണ്തീരുമാനം എടുത്തത്

മുംബൈയ്ക്കു പുറമെതാനെ റെയ്ഗാർഡ് കൊങ്കൺ മേഖലഎന്നിവിടങ്ങളിലുംഅതിശക്തമായമഴയ്ക്ക് സാധ്യതയു ന്നാണ്മുന്നറിയിപ്പ് സ്ഥിതി നിരീക്ഷിക്കാൻ ജില്ലാകളക്ടർമാർക്ക്ഗവൺമെന്റ് നിർദ്ദേശം നൽകി

ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം താലിബാൻ ഏറ്റെടുത്തു ആക്രമണത്തിൽ ദക്ഷിണ സാബുൽ പ്രവിശ്യാ തലസ്ഥാനമായ ഖലാത്തിലെ ആശുപത്രി കെട്ടിടം ഭാഗികമായി തകർന്നു ദേശീയ സുരക്ഷ വകുപ്പിന്റെ ഭിത്തിയും സ്ഫോടനത്തിൽ തകർന്നതായി പ്രവിശ്യാ കൌൺസിൽ മേധാവി അത്ത ജൻ ഹഖ്ബയാൻ പറഞ്ഞു അതേസമയം ഇൻലിജൻസ് വകുപ്പ് കെട്ടിടമായിരുന്നു ലക്ഷ്യമെന്ന് താലിബാൻ പറഞ്ഞു

ര അനുമതി നിഷേധിക്കുന്നത്